ദൌത്യം ചാന്ദ്ര പര്യവേഷണത്തിലെ നാഴികക്കല്ലെന്ന് ഐഎസ്ആർഒ

ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി

അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം

ഉപഗ്രഹത്തെ സ്ഥാപിക്കുന്ന ലൂണാർ ഓർബിറ്റ് ഇൻസേർഷൻ വിജയകരമായി പൂർത്തിയാക്കിയതായി ഐഎസ്ആർഒ ചെയർമാൻ ഡോ

ശിവൻ ബംഗളുരുവിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

ബംഗളൂരുവിലെ ഐഎസ്ആർഒ കേന്ദ്രത്തിൽ നിന്ന് ഉപഗ്രഹത്തിന്റെ പ്രവർത്തനം നിരന്തരം വിലയിരുത്തുന്നുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി മഴക്കെടുതി സംസ്ഥാനത്ത് ഉരുൾപൊട്ടൽ വ്യാപക നാശം വിതച്ച വയനാട് പുത്തുമലയിലും മലപ്പുറം കവളപ്പാറയിലും കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ തുടരുന്നു

പുത്തുമലയിൽ നിന്ന് ഇന്നലെ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു

നിലമ്പൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ നാശം

തൃശൂർ ജില്ലയിൽ നിന്ന് ക്യാമ്പുകളിൽ ഭൂരിഭാഗം പേരെയും പിരിച്ചുവിട്ടു

നിലമ്പൂരിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള മുസ്തിം ജമാ അത്തിന്റെ ആഭിമുഖ്യത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടന്നുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു

വെള്ളത്തിന്റെ ഭൌതിക രാസ ഗുണനിലവാരവും കോളി ഫോം ബാക്ടീരിയയുടെ സാന്നിധ്യവും പരിശോധിക്കാൻ ജില്ലാ കാളിറ്റി കൺട്രോൾ ലാബിൽ സൌകര്യമുണ്ട്

ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്നും നാളെയും കണ്ണൂരിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

രവീന്ദ്രനാഥ് ആകാശവാണിയോട്

ഇതുസംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവായി

ഡി എസ് സഖ്യം തകർന്നതിനെ തുടർന്ന് അധികാരത്തിലെത്തിയ ബി

സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കാൻ എ ഡി ജി

കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി ജാസ്മിൻ ഷാ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് അരുൺ ജെയ്റ്റ്ലി ന്യൂഡൽഹിയിലെ എയിംസിൽ ചികിത്സയിൽ കഴിയുന്ന മുതിർന്ന ബിജെപി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു

ഇടുക്കി ഇൻട്രോ മഴക്കെടുതിയെ തുടർന്ന് ഭൂമിയുടെ ർത്തട്ടിലുണ്ടായ മാറ്റങ്ങൾ പഠിക്കാൻ സംസ്ഥാന ദുരന്ത്രനീവാരണ വകുപ്പ് നിയോഗിച്ച ഭൌമശാസ്ത്രജ്ഞരുടെ സംഘും ് നാള്ളെ മുതൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പരിശോധന നടത്തും കുടുതൽ വിവരങ്ങളുമായി ആന്റണി മുനിയറ ചേരുന്നു

സേനയുടെ തമിഴ്നാട്ടിലെ പുതുകോട്ട ജില്ലയിലെ കോട്ടൈ പട്ടിണത്താണ് ഇവർ പിടിയിലായത്

സതീശൻ പാച്ചേനി കണ്ണൂർ ധനികരുടെയും ദ ദരിദ്രരുടെയും ഇടയിലുള്ള അന്തരം കുറച്ച് വിപ്തവകരമായ നേട്ടത്തിലേക്ക് രാജ്യത്തെ നയിച്ച മികച്ച ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി എന്ന് കണ്ണൂർ ഡി സി

മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എൽ എ ജോൺ ലൂക്കോസ് എന്നിവരെ സംസ്ഥാന ഗവൺമെന്റ് നാമനിർദ്ദേശം ചെയ്തു ജോൺ ഫെർണാണ്ടസ് നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയും ജോൺ ലൂക്കോസ് സി

ഐ എറണാകുളം ജില്ലാ കൌൺസിൽ അംഗവുമാണ് നെഹ്റു ട്രോഫി പ്രളയത്തെ തുടർന്ന് മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ എത്രയും വേഗം ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു

തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന മേയേഴ്സ് എവറോളിംഗ് ഗോൾഡ് കപ്പ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ടൂർണമെന്റ് മാറ്റി വച്ചു സംസ്ഥാനത്തെ പ്രകൃതിക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണിത്

ജി

സി യിലെ ഡെവലപ്മെന്റ് ഓഫീസർമാരുടെ സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇൻഷൂറൻസ് ഫീൽഡ് വർക്കേഴ്സ് ഓഫ് ഇന്തൃ യുടെ മുപ്പതാമത് ദക്ഷിണമേഖല ദൈവാർഷിക സമ്മേളനം ആരംഭിക്കും

ഉദ്ഘാടനം ചെയ്യും